എക്സ് മീഡിയ കേസിൽ മുൻ കേന്ദ്രമന്ത്രി പി ചിദംബരത്തെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സിബിഐ കേന്ദ്ര അനുമതി തേടി

ഇക്കാലയളവിൽ രാജ്യത്തിന്റെ സമസ്ത മേഖലകളും വൻ മാറ്റങ്ങൾക്ക് സാക്ഷൃം വഹിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു

ഹിന്ദി ഭാഷയിൽ സദസിനെ അഭിസംബോധന ചെയ്ത മൌറിഷ്യസ് പ്രധാനമന്ത്രി ദിനാചർണം പ്രവാസി ഭാരതീയ സമൂഹത്തിന്റെ അത്യപൂർവ്വമായ ഒത്തുചേരലാണെന്ന് പറഞ്ഞു സമ്മേളനത്തിൽ പങ്കെടുത്ത വിദേൾകാര്യമന്ത്രി സുഷമ സ്വരാജ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്തൃ ഏറെ ശക്തിയാർജ്ജിച്ചതായി ദിവസത്തിന് തുടക്കമിട്ട്ൻ ് മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി നടത്തിയ ശ്രമത്തെയും ശ്രീമതി സുഷമ സ്വരാജ് അനുസ്മരിച്ചു

വോട്ടിംഗ് യന്ത്രം തികച്ചും സുരക്ഷിതമാണെന്നും കമ്മീഷൻ പറഞ്ഞു ലണ്ടനിൽ നടന്ന സമ്മേളനത്തിൽ വോട്ടിംഗ് യന്ത്രത്തിൽ തിരിമറി നടത്താമെന്ന വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് കമ്മീഷന്റെ വിശദീകരണം അതേസമയം ലണ്ടനിലെ പരിപാടിയിൽ കോൺഗ്രസ് നേതാവ് കപിൽ സിബൽ പങ്കെടുത്തിനെ ബി ജെ

ചിദംബരത്തെ പ്രോസിക്യൂട്ട് ് പ്പെയ്യാ്ൻ സി ബി ഐ കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതി തേടി

ഐ

ഈ ഇടപാടിൽ പത്ത് ലക്ഷം രൂപ കൈപറ്റിയതായി ആരോപിച്ച് ചിദംബരത്തിന്റെ മകൻ കാർത്തി ചിദംബത്തെയും സിബിഐ അറസ്റ്റ് ചെയ്തിരുന്നു

ചൈന ഈ വർഷം ലക്ഷ്യമിടുന്ന വളർച്ചയേക്കാൾ കൂടുതലായിരിക്കും ഇന്ത്യൻ സമ്പദ്വ്യവ്സ്ഥയുടെ വളർച്ചയെന്നും റിപ്പോർട്ടിൽ പറയുന്നു അന്താരാഷ്ട്രതലത്തിൽ അസംസ്കൃത എണ്ണവിലയിൽ വന്ന ഇടിവും മിതവൃയവുമാണ് സാമ്പത്തിക വളർച്ചുയെ സ്വാധീനിച്ച ഘടകങ്ങളായി ഐ എം എഫ് കാണുന്നത്

പ്രദേശത്ത് ഏറ്റുമുട്ടൽ തുടരുന്നതായാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമായ സൂചന

വിശദാംശങ്ങളുമായി സോഫിയ വോയിസ് രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ബാലശക്തി പുരസ്കാർ ബാല കല്യാൺ പുരസ്കാർ എന്നിങ്ങനെ രണ്ട് തരം സമ്മാനങ്ങളായിരിക്കും നൽകുക

ഇതിൽ ഒരെണ്ണം കായിക സാംസ്കാരികം സാമൂഹ്യ സേവനം ധീരത എന്നീ ഇനങ്ങളിലെ സംയുക്ത പുരസ്കാരമാണ്

ഒരു ലക്ഷം രൂപ ക്യാഷ് പ്രൈസും പ്രിതിനായിരം രൂപയുടെ ചെക്ക് വൌച്ചറും അടങ്ങുന്നതാണ് ബൂലപുരസ്കാർ സമ്മാനം ബാല കല്യാൺ പുരസ്കാറിൽ വ്യക്തികൾക്ക് ഒരു ലക്ഷം രൂപയും സ്ഥാപനങ്ങൾക്ക് അഞ്ച് പ്രിക്ഷം രൂപയും സമ്മാനതുക ലഭിക്കും

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ ഏർപ്പെടുത്തിയതോടെ കൂടുതൽ ജനങ്ങൾ വോട്ട് ചെയ്യാൻ എത്തിത്തുടങ്ങിയതായി ശ്രീ നിതീഷ്കുമാർ പാറ്റ്നയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളോടൊപ്പം വി വി പാറ്റ് സംവിധാനം തെരഞ്ഞെടുപ്പ് കൂടുതൽ കുറ്റമറ്റതാക്കുമെന്ന് ബിഹാർ മുഖ്യമന്ത്രി പറഞ്ഞു

നൊബേൽ പുരസ്കാര ജേതാവ് കൈലാഷ് സത്യാർത്ഥി സംവിധായകൻ കരൺ ജോഹർ എന്നിവരും പങ്കെടുക്കും

മുഖ്യമന്ത്രി സർബാനന്ദ് സോനോവാളിന്റെ അധ്യക്ഷതയിൽ ഗുവാഹത്തിയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം മുഖ്യമന്ത്രി കൃഷി സാ സാജുലി യോജനയിലൂടെ സംസ്ഥാനത്തെ അഞ്ച് ലക്ഷത്തോളം വരുന്ന കർഷകർക്ക് അയ്യായിരം രൂപ വീതം സഹായം നൽകാനും തീരുമാനമായി

ന്യൂഡൽഹിയിലെ നാഷണ്ടൽ ക്യാലറി ഓഫ് മോഡേൺ ആർട്ടിൽ വച്ച് സംഘടിപ്പിക്കുന്നു ല്ലേത്തിൽ നിന്ന് സമാഹരിക്കുന്ന തുക നമാമി ഗംഗാ പദ്ധതിയ്ക്കായി വിനിയോഗിക്കുമെന്ന് ഔദ്യോഗിക അറിയിപ്പിൽ പറയുന്നു

കർണാടകയിൽ മൂന്നു ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു

ഭൂമികുലുക്കത്തിൽ ആളപായമോ മറ്റ് നാശനഷ്ടങ്ങളോ ഉണ്ടായതായി സൂചനയില്ല

കൂടുതൽ വിവരങ്ങളുമായി സോഫിയ വോയിസ് മിക്സഡ് ഡബിൾസിൽ അഞ്ചാം സീഡായ റോബർട്ട് ഫറ അന്നാ ലേന ഗ്രോൺഫീൽഡ് എന്നിവരാണ് എതിരാളികൾ നേരത്തെ ആദ്യറൌണ്ടിൽ ഇന്തോ ഓസ്ട്രേലിയൻ ജോഡികൾ ചെക്ക് നെതർലാന്റ്സ് താരങ്ങളെ തോൽപ്പിച്ചിരുന്നു

വനിതാ സിംഗിൾസിൽ സെറീന വില്യംസ് കരോളിന പ്ലിസ്കോവ നവോമി ഒസാക എലീന സ്വിറ്റോലിന തുടങ്ങിയവർ കാർട്ടർ ഫൈനലിൽ കടന്നു പുരുഷ സിംഗിൾസിൽ ലോക ഒന്നാം നമ്പർ താരം നൊവാക് ദ്യോകോവിച്ച് കാർട്ടറിൽ ഇടം നേടി ന്യൂസ് ഡെസ്ക് ആകാശവാണി

അസർബയ്ജാന്റെ ഷാഖരിയാർ മമെദിയാറൊവിനെയാണ് എട്ടാം റൌണ്ടിൽ ആനന്ദ് പരാജയപ്പെടുത്തിയത്

വിരാട് കോഹ്ലിയാണ് ഇരു വിഭാഗങ്ങളിലെയും ക്യാപ്റ്റൻ ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യ ന്യൂസിലാന്റ് ടീമുകളിലായ മൂന്ന് കളിക്കാരും ഓഡീ സ്കാഡിൽ ഇരു ടീമുകളിലായി നാല് കളിക്കാരുമാണുള്ളത്